രാജ്യം തലയുയർത്തി നിൽക്കുന്ന നിമിഷമാണിതെന്ന് പ്രധാനമന്ത്രി

റഫാൽ യുദ്ധവിമാന ഇടപാടിൽ വിലയുൾപ്പെടെ കാര്യങ്ങൾ നൽകണമെന്ന് സുപ്രീംകോടതി നിർദേശിച്ചു

ൾ ൽ ൾ സർദാർ വല്ലഭ്ഭായ് പട്ടേൽ പൂർണ്ണകായ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു രാജ്യത്തെ ചിഹ്നഭിന്ന മാക്കാൻ നടത്തിയ ശ്രമങ്ങൾ തകർത്ത ധൈരൃശാലിയെ ഓർമ്മി പ്പിക്കുന്നതാണ് പ്രതിമയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യം തല യുയർത്തി നിൽക്കുന്ന നിമിഷമാണിതെന്നും അദ്ദേഹം പറഞ്ഞു

പ്രതിമയുടെ കാൽച്ചുവട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഐക്യ ത്തിന്റെ ഭിത്തിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു സമർപ്പണ ചടങ്ങിൽ പ്രധാനമന്ത്രി മണ്ണും നർമ്മദ ജലവും കലശത്തിലാക്കി പ്രതീകാത്മകമായി ശില്പത്തിൽ അഭിഷേകം ചെയ്തു

ചടങ്ങിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികളും സംഘ ടിപ്പിച്ചിട്ടുണ്ട്

പ്രതിമക്കു ചുറ്റും ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതിന് പുഷ്പങ്ങളുടെ താഴ്വരയും ടെന്റ് സിറ്റിയും വികസിപ്പിച്ചിട്ടുണ്ട്

ധീരവനിതയെ രാജ്യം ആദരവോടെ അനുസ്മരിക്കുകയാണ് നാല് തവണ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട അവർ രാജ്യ ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധി കാരികളിൽ ഒരാളായാണ് അറിയപ്പെടുന്നത്

തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാ ഭവനിൽ ഇന്ദിരാഗാന്ധിയുടെയും സർദാർ പട്ടേലിന്റെയും ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടന്നു തുടർന്ന് സർവ്വമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു

ജില്ലാ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃ ത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്

സിയുടെ ആഭിമുഖ്യത്തിൽ മതേതര സന്ദേശ യാത്ര ഇന്ന് വൈകീട്ട് പാലക്കാട്ട് നടത്തും

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേതൃത്വം നൽകും ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ച വിധിക്ക് എതിരായ റിവ്യൂ ഹർജികൾ ഉടൻ കേൾക്കില്ലെന്ന് സുപ്രീം കോടതി വൃക്തമാക്കി

ശബരിമല സ്ത്രീ പ്രവേശന വിഷയ്ത്തിൽ സുപ്രീംകോടതി റിവ്യൂ ഹർജി പരിഗണനയ്ക്കെടുക്കുന്നതു വരെ എൻ എസ് എസ് നാമജപയജ്ഞം നടത്തുമെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാ രൻ നായർ അറിയിച്ചു അധികൃതരുടെ മനസ്സുമാറാനാണ് പ്രർത്ഥന നടത്തുന്നതെന്ന് പെരുന്നയിൽ എൻ എസ് എസ് പതാ കദിനാചരണ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു വിധി പ്രതികൂലമാ യാൽ തുടർ നടപടിയാലോചിക്കുമെന്നും അദ്ദേഹം വ്യക്തമാ ക്കി ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധ പ്പെട്ട കാരൃങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചുചേർത്ത യോഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ പങ്കെടുത്തില്ല

തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന പുതുച്ചേരി എന്നിവിടങ്ങളിലെ മന്ത്രിമാരെയാണ് യോഗത്തിന് ക്ഷണിച്ചിരുന്നത് എന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ മാത്രമാണ് യോഗത്തിന് വന്നത് ശബരിമലയിൽ സ്ഥകാരൃ വാഹനങ്ങൾ അനുവദിക്കുകയില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ശബരിമല തീർത്ഥാടകർക്ക് സ്വകാര്യ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാരുടെ സഹായത്തോടെ വാഹനങ്ങൾ അനുവദിക്കുന്നതിന് കെ എസ് ആർ ടി സി എം ഡി ടോമിൻ ജെ തച്ചങ്കരിയെടുത്ത തീരുമാനം നടപ്പാക്കാൻ ഗവ ഉദ്ദേശിക്കുന്നില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് വ്യക്തമാക്കി

എന്നാൽ ഇതിന്റെ ആവശൃമില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ പി സദാശിവവു മായി കൂടിക്കാഴ്ച നടത്തി രാവിലെ രാജ്ഭവനിലായിരുന്നു കൂടി ക്കാഴ്ച

ജസ്റ്റിസുമാരായ യു യു ലളിത് കെ എം ജോസഫ് എന്നിവര ടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു ഓൺ ലൈനിൽ നൽകാൻ കഴിയുന്ന കാരൃങ്ങൾ പരാതിക്കാർക്ക് നൽകണമെന്നും കോടതി പറഞ്ഞു തന്ത്രപരവും രഹസ്യ സ്വഭാവമുള്ളതുമായ രേഖകൾ നൽകേണ്ട തില്ലെന്നും കോടതി വ്യക്തമാക്കി

ഇവരെ വെറുതെ വിട്ട വിചാ രണ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയാണ് കോടതി വിധി നിരാ യുധരും നിരാലംബരുമായ ജനങ്ങളെ കരുതിക്കൂട്ടി കൂട്ടക്കൊല ചെയ്യുകയായിരുന്നുവെന്ന് കോടതി പറഞ്ഞു ദക്ഷിണ ജമ്മു കശ്മീരിലെ ത്രാൽ പ്രദേശത്ത് സുരക്ഷാ സേന കനത്ത ഏറ്റുമുട്ടലിൽ രണ്ട് ജയ്ഷെ മുഹമ്മദ് ഭീകരരെ വധിച്ചു ജയ്ഷെ മുഹമ്മദ് തലവൻ മൌലാനാ മസൂദ് അസറിന്റെ അനന്ത രവൻ ഉസ്മാൻ ഹൈദറും ഇതിപ്പെടുന്നു ഇവർ കൊല്ലപ്പെട്ട സ്ഥലത്തു നിന്ന് ഒളിയാക്രമണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രി കൾ കണ്ടെടുത്തായി പൊലീസ് അറിയിച്ചു എസ്എൻഡിപി നേതാവ് തുഷാർ വെള്ളാപ്പള്ളിക്ക് എതിരായ പ്രോസിക്യൂഷൻ നടപടികൾ തുടരാമെന്ന് തൃശൂർ വിജിലൻസ് കോടതി വൃക്തമാക്കി ഗുരുവായൂർ ദേവസ്വം അഴിമതി കേസിലാണ് നടപടി കേസിൽ തുഷാർ വെള്ളാപ്പള്ളിയെ പ്രതിയാക്കിം തൃശൂർ വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു

ഇറക്കുമതിക്കാരിൽ നിന്ന് ഡോളറിന് ആവശൃം വർദ്ധിച്ച താണ് ഇതിന് കാരണം ഇന്തൃ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ അവസാന മത്സരം നാളെ തിരുവനന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ് സ്റ്റേഡിയത്തിൽ നടക്കും

വെസ്റ്റിൻഡീസ് ടീം ഇന്ന് പരിശീലനം നടത്തുന്നില്ല

ഗ്വർണർ പി സദാശിവം മുഖ്യമന്ത്രി പിണറായി

അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പര യിലെ അവസാന മത്സരം ഇരുടീമുകൾക്കും നിർണായകമാണ് പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ വിജയിച്ചു ഇന്ത്യയാണ് മുന്നിട്ടുനിൽക്കുന്നത് നാളെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് കളി

ഇൻഫാനിലെ കുമാൻ ലംപാക്ക് സ്റ്റേഡിയത്തിൽ ഉച്ച കഴിഞ്ഞ് രണ്ടിനാണ് മത്സരം ഗോകുലത്തിന്റെ ആദ്യ എവെ മാച്ചാണിത് ആദ്യ മത്സരത്തിൽ മോഹൻ ഭഗനെ സമനിലയിൽ തളച്ച ആത്മ വിശ്വാസവുമായാണ് ഗോകുലം ഇന്ന് കളിക്കിറങ്ങുന്നത്

ഉത്തര മല ബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതാണ് കട ലുണ്ടി വാവുത്സവം

അടുത്ത ബുധനാഴ്ചയാണ് ചരിത്ര പ്രസിദ്ധമായ കട ലുണ്ടി വാവുത്സവം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ജിദ്ദയിലേക്ക് രണ്ടാ ഴ്ചക്കകം വിമാന സർവീസ് പുനഃരാരംഭിക്കുമെന്ന് സൌദി എയർലൈൻസ് അധികൃതർ ഉറപ്പു നൽകിയതായി പി കെ കുഞ്ഞാലിക്കുട്ടി എം പി അറിയിച്ചു വ്യോമയാന് വകുപ്പ് ഉദ്യോ ഗസ്ഥരുമായും സൌദി എയർലൈൻസ് അധ്യികൃതരുമായും നട ത്തിയ ചർച്ചയിലാണ് ഈ ഉറപ്പ് ലഭിച്ചതെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു ദേശീയ ഏകതാ ദിനാചരണത്തോടനുബന്ധിച്ച് മലപ്പുറം നെഹ്റു യുവ കേന്ദ്രയും മലപ്പുറം ഗവ കോളജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും ചേർന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മലപ്പുറം കോളേജ് സെമിനാർ ഹാളിൽ നടന ഏകതാ സമ്മേളനം എം

പി കമാന്റന്റ് യു

കടയ്ക്കൽ ചരിപറമ്പ് സ്വദേശി സുജിത്തിനെയാണ് വീടിന്റെ രണ്ടാം നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സർവ്വീസ് റിവോൾവർ ഉപയോഗിച്ച് സ്വയം വെടിവെച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം

മൃതദേഹം വീട്ടിൽ നിന്ന് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു തിരൂർ പൊലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് എ

ഐയുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്കാണ് പുലർച്ചെ കത്തിച്ച നിലയിൽ കണ്ടെത്തിയത്